ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാംഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു

ഏഴാം ഘട്ട വോട്ടെടുപ്പിന് ഒരുക്ക്ക്ങ്ങ്ൾ ഊർജ്ജിതം പ്രചാരണത്തിന് ചൂടേറി

ദയയിലും വിവേകത്തിലും അധിഷ്ഠിതമായ മൂലൃങ്ങൾ ഉയർത്തിപ്പിടിക്കണ്ണ്ഐന്ന് ഉപരാഷ്ട്രപതി എം

ഈസ്റ്റർ ദിനത്തിലെ ഭീകരാക്രമണത്തിന് ശേഷം ശ്രീലങ്കയിലെ കത്തോലിക്കാ പള്ളികളിൽ ഞായറാഴ്ച കുർബാന നടന്നു

എൽ കലാശകളി അല്പ സമയത്തിനകം ചെന്നൈ സൂപ്പർ കിംഗ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു

കേന്ദ്രമന്ത്രിമാരായ രാധാമോഹൻ സിംഗ് ഹർഷവർധൻ മേനകാഗാന്ധി നരേന്ദ്രസിംഗ് തോമർ കൃഷ്ണൻപാൽ ഗുർജാർ റാവോ ഇന്ദ്രജിത് സിംഗ് എന്നിവരും ഗൌതംഗംഭൂർ മനോജ് തിവാരി ഷീലാദീക്ഷിത് ജ്യോതിരാദിത്യ സിന്ധ്യ വിജേന്ദർ സിംഗ് തുടങ്ങിയവരും ഇന്ന് ജനവിധി തേടിയ പ്രമുഖരിൽപെടുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി കേന്ദ്രമന്ത്രിമാരായ സുഷമാസ്വരാജ് ഹർദീപ് പുരി യു

എ ചെയർപെഴ്സൺ സോണിയ ഗാന്ധി കോൺഗ്രസ്സ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി പശ്ചിമബംഗാളിലെ ചില സ്ഥലങ്ങളിൽ അക്രമസംഭവങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്

ശക്തമായ ഗവൺമെന്റിനു മാത്രമേ ഭീകരതയ്ക്കും അഴിമതിയ്ക്കുമെതിരെ പോരാടാനാകൂവെന്ന് ഡിയോറയിൽ നടന്ന വിജയ് സങ്കല്പ് റാലിയിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു ദാരിദ്ര്യത്തിനും ഭീകരതയ്ക്കുമെതിരെ പോരാടാൻ പ്രതിപക്ഷത്തിനു ശക്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ജെ പി അദ്ധ്യക്ഷൻ അമിത് ഷാ ഇന്ന് ഹിമാചൽ പ്രദേശിൽ പ്രചാരണം നടത്തി

കോൺഗ്രസ്സ് അദ്ധ്യക്ഷൻ രാജ്ബബ്ബർ ചന്ദൌലിയിലും സലെംപൂരിലും യോഗങ്ങളിൽ പങ്കെടുത്തു ഗുലാംനബി ആസാദ് മഹാരാജ് ഗഞ്ചിൽ പ്രചാരണം നടത്തി സമാജ്വാദി പാർട്ടി അദ്ധ്യക്ഷൻ അഖിലേഷ് യാദവ് മിർസാപൂരിലും സോനെഭദ്രയിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിച്ചു

പി അദ്ധ്യക്ഷ മായാവതി പഞ്ചാബിലെ ഷഹീദ് ഭഗത്സിംഗ് നഗർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തു

ഡൽഹി ഔറംഗസ്ട്രേണ്ട് പ്ലെ്നിലെ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയശേഷം സംസാരിക്കുകുയായിരുന്നു അദ്ദേഹം

ഐഎം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി വോട്ടെടുപ്പിന്റെ നിശബ്ദ പ്രചരണ ദിവസം വോട്ടർമാരെ സ്വാധീനിക്കാനാണിതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നൽകിയ പരാതിയിൽ പറയുന്നു ഇതിനെതിരെ നടപടി വേണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു

രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും

മെഷീനിലെ വോട്ടെണ്ണൽ പൂർത്തിയായതിന് ശേഷം എല്ലാ നിയമസഭാ മണ്ഡലത്തിലെയും അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലെ വിവിപാറ്റ് മെഷീനുകളിലെ പ്രിന്റഡ് ബാലറ്റുകൾ പരിശോധിക്കും

ആദ്യ റൌണ്ട് ഫലം ഒമ്പത് മണിയോടെ ലഭ്യമാകും

ആറ്റാട്ട് ൽലിട്ട വോട്ടെടുപ്പിന്റെ വിശകലനത്തിൽ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കെടുക്കും

ഹൈദരാബാദ് രാജീവ്ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം

എട്ടാം തവണയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഐപിഎൽ ക്രിക്കറ്റിന്റെ ഫൈനലിൽ എത്തുന്നത്

അന്ന് മുംബൈയ്ക്കായിരുന്നു ജയം

ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു

വെങ്കയ്യനായിഡു ലോക സമൂഹത്തോട് ആഹ്വാനം ചെയ്തു പരിമിതമായ വിഭവങ്ങളുടെ ഉപയോഗത്തിൽ സമൂഹം നിയന്ത്രണം പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബുദ്ധപൂർണ്ണിമയോടനുബന്ധിച്ച് വിയറ്റ്നാമിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിപാടിയിൽ പങ്കെടൂക്കുകൃതായിരുന്നു ഉപരാഷ്ട്രപതി ജനങ്ങൾക്കിടയിൽ ്സമ്പാധാനവും സൌഹാർദ്ദവും നിലനിർത്തുന്നതിൽ ലോകനേത്രി ്ക്ക്ൾ വെല്ലുവിളി നേരിടുകയാണെന്നും അദ്ദേഹ്ട്ട് പറഞ്ഞു

ഈ സാഹചരൃത്തിൽ അഹിംസ്യിലൂന്നിയ ശ്രീബുദ്ധന്റെ ആശയങ്ങൾ ഏറെ പ്രസക്തമാണെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

കർശന സുരക്ഷയിലാണ് ആരാധന നടന്നത് ഭീകരാക്രമണത്തിനു ശേഷമുള്ള രണ്ട് ഞായറാഴ്ചകളിൽ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്ന് പ്രാർത്ഥനകൾ നടത്തിയിരുന്നില്ല അടച്ചിട്ടിരിക്കുന്ന കാത്തലിക് സ്കൂളുകൾ ചൊവ്വാഴ്ച തുറക്കും

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം തീരദേശത്തെ കാർഷിക മേഖലകളിൽ സന്ദർശനം നടത്തിയ ശേഷം കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകും ഊർജ്ജവകുപ്പ് സെക്രട്ടറിയുടെ ഭ്ന്നതൃത്വത്തിലുള്ള മറ്റൊരു സംഘം വൈദ്യുതി മേഖലയിലുണ്ടായ നൃഷ്ട്ടം വിലയിരുത്തും

മുൻ വർഷങ്ങളിൽ വിവിധ ആവശൃങ്ങൾക്കനുവദിച്ചതും ചെലവാക്കപ്പെടാത്തതുമായ പണവും വെട്ടിക്കുറച്ച പദ്ധതിച്ചെലവുകളിൽ നിന്നുള്ള പണവും ഇതിനായി വിനിയോഗിക്കാൻ തീരുമാനിച്ചതായി പ്രതിരോധ സെക്രട്ടറിയുടെ ചുമതലയുള്ള പാട്രിക്ക് ഷനഹാൻ അറിയിച്ചു

സൌദിയിലെ ന്യൂനപക്ഷമായ ഷിയാകളും സൈന്യവും തമ്മിൽ പ്രദേശത്ത് തുടർച്ചയായി ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട് കൊല്ലപ്പെട്ടവർ രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിടുകയായിരുന്നു എന്ന് സൌദി ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയം പുറത്തിറിക്കിയ പ്രസ്താവനയിൽ പറയുന്നു

ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യവിവരത്തെതുടർന്ന് തെരച്ചിൽ നടത്തുന്നതിനീട്ട്യാണ് സുരക്ഷാസേന ഭീകരരെ വധിച്ചത് കൂടുതൽ ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് സുരക്ഷാ സേനയുടെ നിഗമനം

വെള്ളിയാഴ്ച രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിനെത്തുടർന്നാണ് ഇവിടെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത്

സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടു വരുന്നതായി അധികൃതർ അറിയിച്ചു

അമ്മമാ രെ ആദരിക്കുന്നത് ഉൾപ്പെടെ നിരവധി പരിപാടികളും ജില്ലാടിസ്ഥാന ത്തിൽ ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അമേരിക്കയിലാണ് മെയ്മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച മാതൃദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആധുനിക നഴ് സിങിന്റെ സ്ഥാപകയായ ഫ്ളോറൻസ് നൈറ്റിൻഗേലിന്റെ ജൻമദിനമാ യ ഇന്ന് ലോക നഴ്സസ് ദിനവും ആചരിച്ചു നഴ്സസ് ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘൂട്ട്ടിൽ ് മന്ത്രി കെ

ശൈലജ കണ്ണൂരിൽ നിർവഹിച്ചു

ഒ സംഘടി്പ്പിച്ചിരിക്കുന്ന രണ്ടാഴ്ചത്തെ പരിശീലന പരിപാടിക്ക് നാളെ തുടക്കമാകും

എസ് ആർ

എസ് ആർ ഒ ചെയർമാനുമായി വിദ്യാർത്ഥികൾ സംവദിക്കും